പ്രധാനമന്ത്രി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും

സാങ്കേതികവിദ്യ വൃവസായ്ക്ക് എന്നിവയുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാക്കുണ്ന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേന്ദ്രസർക്കാരും കൃർഷക സംഘടനകളുമായുള്ള ന് ഏഴാം വട്ട ചർച്ച് ശ്ർവസാനിച്ചു തീരുമാനം അടുത്ത ചർച്ചയിലുണ്ടാകുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി

സന്ദർശനത്തിനായി നാളെ ശ്രീലങ്കയിലേക്ക്

ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യാ ലിമിറ്റഡാണ് വാതക വിതരണ പദ്ധതി നടപ്പാക്കുന്നത്

കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കർണാടക ഗവർണർ വാജുഭായ് വാല മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി ബി

ദേശീയ മെട്രോളജി സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും നേട്ടങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിന് തുടക്കമിടുന്ന അവസരത്തിൽ രാജ്യം എല്ലാ ശാസ്ത്രജ്ഞരോടും സാങ്കേതിക വിദഗ്ധരോടും കടപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ വോയ്സ് വ്യവസായവും സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള എൻഡിഎ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നിരവധി ലോകപ്രശസ്ത് ഗവേഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് കാരണമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കോവിഡ് കാലത്തെ അനുഭവങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളുമായി പങ്കുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി സിഎസ്ഐആർ ശാസ്ത്രജ്ഞരോട് അഭ്യർത്ഥിച്ചു പുതിയ വെല്ലുവിളികളും ലക്ഷ്യങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് വൃാവസായിക അടിസ്ഥാനത്തിലുള്ള സമീപനത്തിൽ നിന്ന് ഉപഭോക്തൃ അധിഷ്ഠിത രീതികളിലേക്ക് രാജ്യം നീങ്ങുകയാണ് അതിനാൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ലോകവ്യാപകമായി ലഭിക്കുന്ന സ്വീകാരൃത രാജ്യത്തെ ചെറുകിട ഇടത്തരം മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതൊരു രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് ശാസ്ത്രം സാങ്കേതികവിദൃ വൃവസായം എന്നിവയുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും ശ്രീ മോദി ഓർമപ്പെടുത്തി ദേശീയ പരിസ്ഥിതി സ്റ്റാൻഡേർഡ് ലബോറട്ടറിയുടെ ശിലാസ്ഥാപനം നിർവ്വഹിച്ച പ്രധാനമന്ത്രി ദേശീയ അറ്റോമിക് ടൈം സ്കെയിലും ഭാരതീയ നിർദേശക് ദ്രവ്യയും രാജ്യത്തിന് സമർപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തീരുമാനം അടുത്ത ചർച്ചയിലുണ്ടാകുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പ്രത്യാശ പ്രകടിപ്പിച്ചു

വാക്സിൻ പ്രഖ്യാപനത്തോടെ ശാസ്ത്രമേഖലയിലുള്ള ഇന്ത്യയുടെ കുതിപ്പ് സ്വയം പര്യാപ്ത ഇന്ത്യയെന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഒരു കോടിയോളം കോവിഡ് ബാധിതരാണ് രാജ്യത്ത് ഇതുവരെ രോഗമുക്തരായത്

രോഗികളുമായി അടുത്ത് ഇടപഴകിയവരെ കാറന്റൈനിൽ ആക്കിയിരിക്കുകയാണെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി

ജയശങ്കർ ത്രിദിന സന്ദർശനത്തിനായി നാളെ ശ്രീലങ്കയിലേക്ക് തിരിക്കും ശ്രീലങ്കയിലെ വിദേശകാര്യ മന്ത്രിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും

ഇരു രാജ്യവും തമ്മിലുള്ള ഊഷ്മളമായ നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമാണിതെന്ന് വിദേശകാര്യമന്ത്രാലയം വൃക്തമാക്കി

പരിമിതമായ സർക്കാർ പരമാവധി ഭരണ നിർവ്വഹണം എന്ന കാഴ്ചപ്പാടിലേക്ക് സർക്കാർ നീങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

രേഖകൾ പരിശോധിക്കുന്നതിന് എല്ലാ സംവിധാനങ്ങളെയും ഈ മാസം ഒന്നു മുതൽ ഡിജിറ്റൽ ലോക്കറിലേക്ക് സംയോജിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ പ്രകാശ് ജാവദേക്കാർ അറിയിച്ചു

ആളുകൾ കടന്നുചെന്നിട്ടില്ലാത്ത രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്ര സൌകരൃം വർധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി കേന്ദ്രം പ്രയത്നിക്കുന്നുണ്ടെന്നും അദ്ദേഹം വൃക്തമാക്കി

തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കായി നാല് ലക്ഷം ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തുന്നതെന്നും അദ്ദേഹം ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഒൻപതാം ക്ളാസ് മുതൽ കോളേജ് വരെയുള്ള ക്ളാസ്സുകളും മറ്റ് കോച്ചിങ് സ്ഥാപനങ്ങളുമാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തനം പുനഃരാരംഭിച്ചത്

മഹാരാഷ്ട്രയിലും കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് ചില ജില്ലകളിൽ സ്കൂളുകൾ തുറന്നു

അലക്സാണ്ടറുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു

എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ്

പോയിന്റ് പട്ടികയിൽ ചെന്നൈയിൻ എഫ്സി നിലവിൽ ഏഴാം സ്ഥാനത്തും ഹൈദരാബാദ് എട്ടാം സ്ഥാനത്തുമാണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയം മാത്രം നേടാനായ ഇരു ടീമുകൾക്കും ഇന്നത്തെ വിജയം അനിവാര്യമാണ്

സ്വർണ്ണ വില കൂടി